മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കും

മുരളീധരൻ

പി നടത്തുന്ന വെർച്വൽ റാലി ഇന്ന് സംസ്ഥാനത്ത് വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും മുഖ്യമന്ത്രിമാരുമായി ഇന്നും നാളെയും ചർച്ച നടത്തും

മാർച്ചിൽ രാജ്യത്ത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ ശേഷം ആറാം തവണയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത് കോവിഡ് മഹാമാരി നേരിടുന്നതിലെ പുരോഗതി ആഭ്യന്തര ആരോഗ്യ മന്ത്രിമാരുൾപ്പെടെ മുതിർന്ന മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്തിരുന്നു രാജ്യത്ത് കൊറോണ വൈറസ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചർച്ചയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു രേര രാജ്യത്ത് കൊവിഡ് വ്യാപനം ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ നിരക്ക് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ഡയറക്ടർ ജനറൽ പ്രൊഫ ബൽറാം ഭാർഗവ പറഞ്ഞു കോവിഡ് വ്യാപനം തടയുന്നതിന് ലോക്ക്ഡൌൺ കാര്യക്ഷമമാണെന്ന് തെളിയിച്ചിട്ടുണ്ടെന്നും ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അറിയിച്ചു പരിശോധനയും ഐസൊലേഷനും കണ്ടെയിൻമെന്റും വഴി രോഗവ്യാപനം തടയുക എന്നതാണ് പ്രധാനകാര്യമെന്നും അദ്ദേഹം പറഞ്ഞു

എം

ജി അറിയിച്ചു രുമ രാജ്യത്ത് കോവിഡ് രോഗ മുക്തി നിരക്ക് വർധിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

തിരുവനന്തപുരത്ത് വെള്ളിയാഴ്ച മരിച്ച വഞ്ചിയൂർ സ്വദേശി എസ് രമേശന്റെ സാമ്പിൾ പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണിത്

ദേദ എറണാകുളം ജില്ലയിലാണ് ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്

രുമ കോട്ടയം ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച പത്തു പേരിൽ അഞ്ചു പേർ വിദേശത്തുനിന്നും മൂന്നു പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് വിദേശത്തു നിന്നെത്തിയ ശേഷം നേരത്തെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മാതാപിതാക്കളാണ് മറ്റു രണ്ടുപേർ സമ്പർക്കം മുഖേനയാണ് ഇവർക്ക് രോഗം ബാധിച്ചത്

രോഗം സ്ഥിരീകരിച്ചവരിൽ രണ്ടു പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മൂന്നു പേർ വിദേശത്തു നിന്നും വന്നവരാണ്

രുമ കോഴിക്കോട് ജില്ലയിൽ വിദേശത്ത് നിന്നുവന്ന അഞ്ച് പേർക്കും ഡൽഹിയിൽ നിന്നും വന്ന ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് നൽകിയ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ സംഘത്തിൽ ഈ നഴ്സും ഉണ്ടായിരുന്നു അതോടെയാണ് കുട്ടികളെ ക്വാറന്റൈനിലാക്കിയത്

രുമ തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള ശക്തൻ നഗറിലെ പച്ചക്കറി മത്സ്യ മാർക്കറ്റുകൾ ഇന്നും നാളെയും അണുവിമുക്തമാക്കണമെന്ന ജില്ലാഭരണകൂടത്തിന്റെ തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ മന്ത്രി വി

അരിയങ്ങാടി നായരങ്ങാടി പരിസരത്തേയ്ക്ക് ചരക്ക് ഇറക്കാൻ വരുന്ന എല്ലാ ലോറികളും അണുവിമുക്തമാക്കാനും ഡ്രൈവറും ക്ലീനറും ഉൾപ്പെടെ ലോറിയിലുള്ളവർ ദേഹശുദ്ധി വരുത്തിയതിനുശേഷം മാത്രം മാർക്കറ്റിനുള്ളിലേയ്ക്ക് കടക്കാനും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു

കുവൈത്ത് ഷാർജ ദുബായ് അബൂദാബി എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് വിമാനങ്ങളെത്തുന്നുണ്ട്

മുരളീധരൻ അറിയിച്ചു ഡൽഹിയിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റ്സിന്റെ മൂന്നാമത് വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദേശത്തെ ഇന്ത്യൻ പൌരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും അവരുടെ വിദേശ തൊഴിലവസരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ഗവൺമെന്റ് പുതിയ എമിഗ്രേഷൻ മാനേജ്മെന്റ് ബിൽ കൊണ്ടുവരുമെന്ന് വി മുരളീധരൻ പറഞ്ഞു രുമ രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികത്തിനോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ ബിജെപി നടത്തുന്ന വെർച്വൽ ഇന്ന് റാലി സംസ്ഥാനത്ത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും ബിജെപിയുടെ സോഷ്യൽ മീഡിയാ ലിങ്കുകളിലൂടെയാണ് പ്രവർത്തകരും അനുഭാവികളും റാലിയിൽ പങ്കാളികളാകുക തിരുവനന്തപുരത്ത് തൈക്കാട് ഒരുക്കിയ പ്ലാറ്റ്ഫോമിൽ പ്രമുഖ നേതാക്കൾ റാലിയുടെ ഭാഗമാകും രുമ കുടുംബശ്രീയെ മുൻനിർത്തി സംസ്ഥാന വൈദ്യുത ബോർഡിൽ വൻതോതിൽ പിൻവാതിൽ നിയമനം നടത്താനുള്ള നീക്കത്തിൽ നിന്ന് കെ

ഇതേകുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു

ഇന്ധന വില വർധന അമിത വൈദ്യുതി ബില്ല് എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ധർണ്ണ രുര പ്രമുഖ ചിത്രകാരൻ കെ

ചിത്രകലയിലെ ആധുനികതാ പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്ന ദാമോദരൻ തലശേരി സ്വദേശിയാണ് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരമടക്കം ഒട്ടേറെ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്

ഡി പി എം അലി അസ്ഗർ കൊച്ചിയിൽ അറിയിച്ചു രുമ സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു വെള്ളിയാഴ്ച വരെ വ്യാപകമായി മഴ പെയ്യും

കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം ഇടുക്കി ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു രുമ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസ് പൊതുസമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തുവെന്ന് മന്ത്രി ടി

ഓൺലൈൻ പഠനകേന്ദ്രങ്ങളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി